മോദി ഇന്ന് വെർച്ചലായി അഭിസംബോധന ചെയ്യും

ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും നാല് ജില്ലകളിൽ വോട്ടെടുപ്പ് തിങ്കളാഴ്ച

ഐഎസ്എല്ലിൽ ഒഡീഷ ഗോവ പോരാട്ടം ഇന്ന്

കാർഷിക മേഖലയിലെ എല്ലാ മതിലുകളും തടസ്സങ്ങളും സർക്കാർ ഇപ്പോൾ നീക്കംചെയ്യുകയാണ് പരിഷ്കാരങ്ങൾക്ക് ശേഷം കർഷകർക്ക് പുതിയ വിപണികളും സാങ്കേതികവിദ്യയുടെ കൂടുതൽ ആനുകൂലൃങ്ങളും ലഭിക്കും കോൾഡ് സ്റ്റോറേജ് സൌകര്യം നവീകരിക്കും ഇത് കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് കാരണമാകും

ഫിക്കിയുടെ തൊണ്ണൂറ്റി മൂന്നാർമൃത് വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാട്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യ്പ്പ്പ്യാണ് കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിലും രാജ്യം നേടുന്ന വളർച്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിച്ചത്

രാജ്യവും ലോകമെമ്പാടും വളരെയധികം ഉയർച്ചതാഴ്ചകൾ കണ്ടു ഫെബ്രു വരി മാർച്ച് മാസങ്ങളിൽ പകർച്ചവ്യാധി തുടങ്ങിയപ്പോൾ നാം അജ്ഞാത ശത്രുവിനെതിരെ പോരാടുകയായിരുന്നു രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകിയത് ഉത്പാദനം സമ്പദ് വൃവസ്ഥയുടെ പുനരുജ്ജീവനം എന്നിങ്ങനെ നിരവധി അനിശ്ചിതത്വങ്ങൾ മുന്നിലുണ്ടായിരുന്നു ആ വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് കഴിഞ്ഞു ഡിസംബറോടെ സ്ഥിതി മാറി ഇപ്പോൾ നമുക്ക് ഉത്തരങ്ങളും മാർഗരേഖയുമുണ്ട് ഇന്നത്തെ സാമ്പത്തിക സൂചകങ്ങൾ പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മുൻകാല നയങ്ങൾ പല മേഖലകളിലും കഴിവില്ലായ്മ വളർത്തുകയും പുതിയ പരീക്ഷണങ്ങൾ നിലയ് ക്കുകയും ചെയ്തു

പാരീസ് കരാറിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ

പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടാൽ ആശുപത്രിയിലേക്ക് മാറ്റണം ആശുപത്രികൾക്ക് പുറമേ ഹാളുകളും വാക്സിൻ കേന്ദ്രങ്ങളാക്കും ഇതുസംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകി

എസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഫൈസർ വാക് സിന് അനുമതി നൽകിയത്

അമേരിക്കയിൽ കോവിഡ് രോഗബാധ ഏതാനും ആഴ്ചകൾക്കിടയിൽ കുത്തനെ വർധിച്ചതിനിടെയാണ് വാക്സിന് അനുമതി നൽകിയിരിക്കുന്നത് ഫൈസർ വാക്സിൻ അംഗീകരിക്കുന്ന അഞ്ചാമുത്തു രാജ്യമാണ് യുഎസ്

കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്

ടി സമർപ്പിക്കുന്നതിൽ കൃത്രിമം നടത്തിയതിനെത്തുടർന്ന് ഒരു ലക്ഷത്തിലേറെ കമ്പനികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി

ദേശവ്യാപകമായി ജി എസ് ടി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും കേന്ദ്ര ജി

ഇന്ത്യൻ തുര്മുഖ് മേഖലയുടെ സുസ്ഥിര വികസനത്തിന് അനുഗുണ്ട്മായ് അന്തരീക്ഷം സൃഷ്ടിക്കു കയെന്ന വിശാലമായ ലക്ഷ്യ ത്തോട്ടെയാണ് ബിൽ കൊണ്ട് വരുന്നത്

ജവഹർ തുരങ്കത്തിൽ മഞ്ഞ് അടിഞ്ഞതോടെയാണ് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചത്

ജമ്മു കാഷ്മീർ ട്രാഫിക് പോലീസാണ് ഇക്കാരൃം അറിയിച്ചത്

എലൂരുവിലെ ആശുപത്രികളിൽ ഏഴ് പേർ ചികിത്സയിലാണ്

തക്കാളിയിൽ കീടനാശിനികളുടെയും അരിയിൽ മെർക്കുറിയുടെയും അംശം കാണപ്പെട്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു

മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന് ദന്തേവാഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് അഭിഷേക് പല്ലവ പറഞ്ഞു മാവോയിസ്റ്റ് ബാധിത ജില്ലയിൽ ഇതാദൃമായി മനുഷ്യാവകാശ ദിനം ആചരിച്ചിരുന്നു

ഒടുവിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യു

ജെ

എം

ഇന്നലെ നടന്ന എ

കെ മോഹൻ ബഗാൻ ഹൈദരാബാദ് മത്സരം സമനിലയിൽ പിരിഞ്ഞു